പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ആയുർവേദ ഗവേഷണ പഠന കേന്ദ്രങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും

ഇന്ന് എൻഡിഎ യോഗം

വയനാട്ടിലും കോഴിക്കോട്ടും ഓരോ പത്രിക ലഭിച്ചു രുര തെരഞ്ഞെടുപ്പിന് പോളിങ്ങ് ഉദ്യോഗസ്ഥരെ തദ്ദേശ നിയമിക്കുന്ന പ്രവർത്തനം സുഖമമാക്കുന്ന ഇ ഡ്രോപ് സോഫ്റ്റ് വെയറിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി ആരംഭിച്ചു ഗവൺമെന്റ് ജീവനക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരിൽ നിന്ന് പോളിങ്ങ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടേകാൽ ലക്ഷത്തോളം പോളിങ്ങ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് രുര മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിലെ സീറ്റ് വിഭജനം പൂർത്തിയായി

ഐഎൻഎൽ രണ്ട് സീറ്റിലും എൻസിപി ജനതാദൾ എസ് എൽജെഡി കേരളാ കോൺഗ്രസ്എം കക്ഷികൾ ഓരോ സീറ്റിലും മത്സരിക്കും

അഞ്ചാമത് ആയുർവേദ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും ഗുജറാത്തിലെ ജാംനഗറിലും രാജസ്ഥാനിലെ ജയ്പൂരിലുമാണ് പഠന സ്ഥാപനങ്ങൾ തുറക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങളിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്ന ആശയത്തിൽ ഊന്നിയാണ് ആയുർവേദ ദിനാചരണം രംഭ സംസ്ഥാനത്തെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് പത്തിൽ താഴെയായി

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് പോസിറ്റീവായവരുടെ എണ്ണം

മുറികളിലെ വായു പ്രത്യേക സംവിധാനത്തിലൂടെ വലിച്ചെടുത്ത് അണുനശീകരണം നടത്തി തിരികെ എത്തിക്കുന്നതാണ് നെഗറ്റീവ് പ്രഷർ എസി സംവിധാനം അകത്തേക്ക് കയറുന്ന വായുവും ഇതേ തരത്തിൽ ശുചീകരിക്കും രും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വെളിയം ഡിവിഷനിൽ സ്ഥാനാർത്ഥിക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി സ്ഥാനാർത്ഥിക്കും കുടുംബാംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു രും സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് വളരെ കുറവാണെന്നും കോവിഡിനെതിരെ മികച്ച പ്രതിരോധം സാധ്യമായെന്നും സംവിധായകൻ പി

കുഞ്ഞുമുഹമ്മദ്

രാവിലെ കളക്ടർ ടി

സുഭാഷ് പദ്ധതി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും കോവിഡ് നിയന്ത്രണത്തിന് ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ ആശയം ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ആയുർവേദ ചികിത്സാകേന്ദ്രങ്ങളിലും പുനർജനി ലഭ്യമാണ്

രും ഇന്നലെ പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് പാക്കേജ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളേയും സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച നടപടികളുടെ തുടർച്ചയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു

സഖ്യത്തിലെ ജനതാദൾയു ബിജെപി ഹിന്ദുസ്ഥാനി അവാമി മോർച്ച വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാക്കൾ എൻഡിഎ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇന്ന് യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രിയും ജനതാദൾയു പ്രസിഡന്റുമായ നിതീഷ് കുമാർ അറിയിച്ചു ജനഹിതം എൻഡിഎക്ക് അനുകൂലമാണെന്നും ഗവൺമെന്റ് രൂപീകരണം വൈകാതെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീപാവലിക്കും ഛാത്തിനും ശേഷമായിരിക്കുമോ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും നിതീഷ് പാട്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രംഭ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സിഡ്നിയിലെത്തി

രും കൊച്ചി നഗരത്തിൽ സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ബസ് ഇന്ന് നിരത്തിലിറങ്ങും പ്രകൃതിവാതകം ഉപയോഗിച്ചാണ് ബസ് ഓടിക്കുന്നത് വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ നിന്ന് രാവിലെ ഒൻപതരക്ക് ആരംഭിക്കുന്ന ആദ്യ സർവ്വീസ് കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സിഇഒ ജാഫർ മാലിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന ക്രിയാത്മക നടപടിയായി കൊച്ചി സ്മാർട്ട് ബസ് കൺസോർഷ്യമാണ് ബസ് രൂപകൽപ്പന ചെയ്തത് രും സംസ്ഥാന സഹകരണ വാരാഘോഷം നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

രും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

രും ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ട തിരുനാൾ ഇന്നലെ വൈകീട്ട് തിരുനാളിനായി നട തുറന്നു ഇന്ന് പുലർച്ചെ പ്രത്യേക പൂജകൾ ആരംഭിച്ചു വൈകീട്ട് ഏഴരക്ക് നടയടക്കും തീർത്ഥാടകർക്ക് സന്നിധാനത്തെത്താൻ അനുമതി നൽകിയിട്ടില്ല

കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മൂന്ന് തേരുത്സവങ്ങളും ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് തീരുമാനം ഗ്രാമവീഥിയിലെ രഥപ്രദക്ഷിണം ഉണ്ടാവില്ല രുര പോളിടെക്നിക് പ്രവേശനത്തിന്റെ അവസാന അലോട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അലോട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ അടുത്ത വ്യാഴാഴ്ച്ച വൈകീട്ട് നാലിനു മുൻപ് പ്രവേശനം നേടേണ്ടതാണ്